പുതിയ കാർഷിക്ട് നിയമങ്ങൾ കർഷക ക്ഷേമം മുൻനിർത്തിയെന്നു്ട് കേന്ദ്രമന്ത്രി

രണ്ടാംമത്സരത്തിൽ ചെന്നൈയ്ക്കെതിരെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു

സാമൂഹ്യ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമിത ബുദ്ധി എന്ന ആശയത്തെ ആസ്പദമാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ

വിദ്യാഭ്യാസം ആരോഗ്യസംരക്ഷണം കൃഷി സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ സാമൂഹിക പരിവർത്തനത്തിനും ശാക്തീകരണത്തിനും നിർമിതബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ആശയകൈമാറ്റത്തിന് മെഗാ ഉച്ചകോടി പ്രയോജനകരമാകും

കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക പരിഷ്കരണ ബില്ലുകളും രാജ്യത്തെ കർഷകർക്ക് ഗുണകരമാകു മെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ

വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നിർണയിക്കുന്നത് നിർമാതാവാണ് പക്ഷെ കാർഷിക വില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇടനിലക്കാർ വില നിർണ്ണയിക്കുന്ന പ്രവ ണതയുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതി ലൂടെ കൃഷിക്കാരനായ നിർമാതാവിന് അവന്റെ കാർഷികോൽപ്പന്ന ത്തിനുള്ള വില തീരുമാനിക്കാനാകും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുക മാത്രമല്ല വില നേരിട്ട് കർഷകരുടെ കൈകളിൽ എത്തുമെന്ന അവസ്ഥയും ഉണ്ടാകുകയാണെന്ന് ജാവ്ദേക്കർ പറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില പോകില്ല കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും ആഗ്രഹിക്കുന്ന വിലയ്ക്ക് വിൽക്കാനും കഴിയും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിപണി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്യം കർഷകർക്കുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കാനാണ് ഇത്തരം നടപടി സ്വീകരിച്ചത്

തൃപ്തികരമായ കരുതൽ ശേഖരം ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യ ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു

നിതീഷ്കുമാർ നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും പകുതിവീതം സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം

ജെ ഡി യുവിന് ലഭിച്ച സീറ്റുകളിൽ നിന്ന് ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് സീറ്റ് നൽകും

ഈ രണ്ട് പാർട്ടികൾക്ക് എത്ര വീതം സീറ്റ് നൽകണമെന്ന് പിന്നീട് തീരുമാനിക്കും

ആർദ്രം മിഷന്റെ ഭാഗമായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗൃ കേന്ദ്രങ്ങളിക്കി മാറ്റിയതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളും മുൻകരുതലുകളും എല്ലാവരും കർശനമായി പാലിക്കണം നിലവിൽ മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ നടക്കുന്ന വാക്സിനുകളുടെ ലഭ്യതയെ കുറിച്ചും വാക്സിൻ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ളവരെക്കുറിച്ചും പഠിക്കാൻ കേന്ദ്ര മന്ത്രാലയം ഉന്നതതല സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യ വാക്സിൻ വിതരണം സംഭരണ സൌകര്യം എന്നിവയെക്കുറിച്ച് വാക്സിൻ നിർമ്മാതാക്കളുമായി സർക്കാർ ചർച്ചകൾ നടത്തി വരുന്നതായും ശ്രീ ഹർഷ വർദ്ധൻ അിറയിച്ചു

കൂടുതൽ പരിശോള്സ്ക് ടീനേരത്തെ തിരിച്ചറിയൽ കൃത്യമായ ചികിത്സ എന്നിവ രാജ്യത്ത് മരണനിരക്കു കുറയാൻ കാരണമായി

രോഗമുക്തരുടെ എണ്ണം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്

ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തിയാണിത്

സംസ്ഥാനത്തെ പകർച്ചവ്യാധിയെ നേരിടാൻ സ്ട്രീക്തിച്ചു നടപടികൾ മന്ത്രി അവലോകനം ചെയ്തു

ക്രിക്കറ്റിൽ ഷാർജയിൽ നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം

ദുബായിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു